ഘട്ടത്തിലേക്ക് കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുന്നു

മറ്റുമുള്ള തപാൽവോട്ട് രേഖഉപ്പിടുത്താൻ നാളെ കൂടി അവസരം

ഡൽഹി ദേശീയ ത്ലസ്ഥാന മേഖലാ ഭേദഗതി ബില്ലിന് ന് രാഷ്ട്രപതി അംഗീക്കാര്ം നൽകി

ആറ് കോടി ഡോസ് കടന്നു

ഏകദിനത്തിലും പരമ്പര നേട്ടവുമായി ഇന്ത്യ

വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തും

അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ ശക്തമായ പ്രചാരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്

രാഹുൽഗാന്ധി അടുത്ത മാസം മൂന്ന് നാല് തീയ്തികളിൽ കേരളത്തിലേക്ക് വീണ്ടും എത്തും സിപിഐ എമ്മിന്റെ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് എന്നിവർ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്

സി പി നേതാവ് പ്രഫുൽ പട്ടേലും എൽ ഡി

എ യുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും കേന്ദ്രമന്ത്രി അമിത് ഷാ ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ

പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും ഈ ആഴ്ച എത്തും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ് സ്മൃതി ഇറാനി തുടങ്ങിയവർ വിവിധ മണ്ഡലങ്ങളിൽ ഇതിനോടകം പര്യടനം നടത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള തപാൽ വോട്ടിങ്ങും തുടങ്ങി

പോലീസ് ഫയർഫോഴ്സ് ഹോം ഗാർഡ് ഉൾപ്പെടെയുള്ളവരാണ് വോട്ട് ചെയ്യുന്നത്

ഡി എ തെരഞ്ഞെടുപ്പ് പ്രചര്ണത്തിന്റെ ഭാഗമായി കേന്ദ്ര ഫിഷറീസ് മന്ത്രി ഗിരിരാജ് സ്ീങ്ങ് അമ്പലപ്പുഴയിൽ റോഡ് ഷോ നടത്തി ആലപ്പുഴി ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിലുമായി അദ്ദേഷം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു

ഉച്ചയ്ക്ക് പള്ളിക്കുന്നിൽ നടക്കുന്ന എൻ ഡി

സി പി അദ്ധ്യക്ഷൻ ശരത് പവാർ ഇന്ന് കേരളത്തിലെത്തും

ബോംബ് സ്കോഡെത്തി അവ നിർവീര്യമാക്കി പൊലീസ് അന്വേഷണം ആരംഭിച്ചു

പി നദ്ദ ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ രൺജിത് കുമാർ ദാസ് എന്നിവർക്കെതിരായ കോൺഗ്രസിന്റെ പരാതിയിൽ കേസെടുത്തു

അസമിൽ ആദ്യഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസൃം പ്രദർശിപ്പിച്ചു എന്നാരോപിച്ചാണ് കേസ്

കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കോയമ്പത്തൂരിൽ നടന്ന ഇരുചക്ര വാഹന റാലിയിൽ പങ്കെടുത്തു

എ ഡി എം കെ ജോയിന്റ് കോഡിന്റേറ്ററും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എടപ്പാടി പളനിസ്വാമിയ്ക്കും പ്രചാരണത്തിൽ സജീവമാണ്

കഴിഞ്ഞയാഴ്ച ബിൽ പാർലമെന്റ് പാസാക്കിയിരുന്നു

സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഹോളി സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നു നൽകുന്നു

മഹാരാഷ്ട്ര ഛത്തീസ്ഗഢ് കർണാടകം പഞ്ചാബ് ഗുജറാത്ത് മധ്യപ്രദേശ് തമിഴ്നാട് എന്നീ ഏഴ് സംസ്ഥാനങ്ങളിൽ പുതിയ പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്

മൃഹാമാരി റിപ്പോർട്ട് ചെയ്ത ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത്

ജനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പക്ഷം ലോക്ഡൌണിന് ഒരുക്കങ്ങൾ ആരംഭിക്കാൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നിർദ്ദേശം നൽകി

ലോകത്തെ ഏറ്റവും തിരക്കേറിയ വ്യാപാര പാതയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചരക്കുകപ്പൽ കുടുങ്ങിയത്

ഭീകര പ്രവർത്തനമാണ് നടന്നതെന്നും ശക്തമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

മൊട്ടോർ സൈക്കിളിൽ എത്തിയ രണ്ട് ചാവേറുകളാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു

സമരത്തിന്റെ പേരിൽ സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിക്കു്ന്ന്തും പൊതുമുതൽ നശിപ്പിക്കുന്നതും നൃായീകരിക്കാനാകില്ല ഇതുവരെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ക്ഷമയോടെയാണ് സർക്കാർ കൈകാര്യം ചെയ്തതെന്നും ഇനി ശക്തമായി ഇതിനെ നേരിടുമെന്നും അസദുസ്സമാൻ ഖാൻ കാൽ പറഞ്ഞു

തായ്വാനും അമേരിക്കയും സമുദ്രവ്യാപാര സഹകരണ കരാറിൽ ഒപ്പിട്ടതിന് പിന്നാലെ വെള്ളിയാഴ്ചയാണ് വ്യോമ കടന്നുകയറ്റ മുണ്ടായത് അനാവശ്യ നടപടിയാണ് ഉണ്ടായതെന്ന് തായ് വാൻ പ്രധാനമന്ത്രി പ്രതികരിച്ചു

ജി സി

രാത്രി സർവീസുകളുടെ ആരംഭത്തോടെ വേനൽക്കാലത്ത് വിമാനങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകും

എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരികെ വിളിച്ചു ക്രിമിനൽ കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ചുമതലക്ക് നിയോഗിക്കാൻ പാടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം മാധ്യമ പ്രവർത്തകൻ കെ

പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഇന്ന് വൈകിട്ട് അഞ്ചിന് ശ്രീകോവിലിൽ ദീപാരാധനയ്ക്കു ശേഷം ഗരുഡവാഹനത്തിൽ വിഗ്രഹങ്ങൾ പുറത്തെഴുന്നള്ളിക്കുന്നതോടെ ആറാട്ട് ഘോഷയാത്രയ്ക്ക് തുടക്കമാവും

തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്